അതിശക്തമായ നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ഇന്ന് പുനഃരാരംഭിക്കും

കൂടുതൽ വിശദാംശങ്ങളുമായി ബിന്ദു വിനോദ് പൂർവ്വ മേദിനിപ്പൂർ ജില്ലയിലെ ഹാൽദിയയിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് മൂന്നാഴ്ചയ്ക്കിടയിൽ രണ്ടാംവട്ടമാണ് പ്രധാമന്ത്രി ബംഗാളിലെത്തുന്നത്

ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ എൽപീജി ഇറക്കുമതി ടെർമിനൽ ഗെയ് ലിന്റെ ഡോബി ദുർഗാപൂർ പ്രക്ട്യതി ്വാതക പൈപ്പ് ലൈൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റ്റാനിചക്കിലെ നാലുവരി മേൽപ്പാത തുടങ്ങിയവയാണ് ഉദ്ഘാട്ടന്ം ചെയ്യുന്നത്

ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഹാൽദിയയിലെ രണ്ടാമത്തെ കാറ്റലിറ്റിക് ഡീവാക് സിങ് യൂണിറ്റിന് അദ്ദേഹം തറക്കല്പിടും

ഡോണിത്പൂർ ജില്ലയിലെ ധെകിയജുലി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും ചടങ്ങിൽ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളും മറ്റ് മന്ത്രിമാരും പങ്കെടുക്കും അസമിലെ ദേശ്ീീയപാതയും ജില്ലാ റോഡ് ശൃംഖലകളും മെച്ചപ്പെടുത്താൻ വ്യേണ്ടിയുള്ള ബൃഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കമിടും ബിശ്വനാഥിലും ചരെഡിയോയിലും സ്ഥാപിക്കുന്ന രണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് തറക്കല്ലിടും മൂന്നാഴ്ചയ്ക്കിടയിൽ രണ്ടാം വട്ടമാണ് പ്രധാനമന്ത്രി ആസം സന്ദർശിക്കുന്നത്

ഓരോ സെഷനിലും പരമാവധി പേർക്ക് വാക്സിൻ നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു സംസ്ഥാനങ്ങളിലെ ആരോഗൃസെക്രട്ടറിമാരുമായും ദേശീയ ആരോഗൃ ദൌതൃം എം ഡി മാരുമായും നടത്തിയ വാക്സിനേഷൻ അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്

കോവിൻ ഡിജിറ്റൽ പ്പാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാക്സിൻ നൽകിയെന്ന് ഉറപ്പുവരുത്താനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി നിർദ്ദേശിച്ചു

പ്രതിരോധ ് ് കുത്തിവയ്പ്പിനെ തുടർന്ന് ആർക്കും ഗുരുതരമായ ആരോഗ്യപ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

സി എം

ഇതനുസരിച്ച് കേരളത്തിൽ കോവിഡ് വന്ന് പോയവർ ദേശീയ ശരാശരിയുടെ പകുതി മാത്രം

സംസ്ഥാനം നടത്തിയ മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കോവിഡ് വന്നുപോയവരുടെ എണ്ണം കുറയാൻ കാരണമെന്ന് മന്ത്രി കെ

കേരളത്തിൽ തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലാണ് മൂന്നാംഘട്ട സീറോ സർവയലൻസ് പഠനം നടത്തിയത്

പൂനെയിൽ ഭാരതരത്ന ജേതാവ് പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ ജന്മശതാബ്ദി വാർഷികാഘോഷത്തിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിയായ അഭിവാദൻ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ ആൾ ഇന്ത്യ റേഡിയോയിലെയും ടെലിവിഷനിലെയും സംഗീത സാന്നിധ്യം സമൂഹമാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നതായും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു ഇന്തൃയിലെത്തി ഇന്തൃൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കായി അടുത്ത വർഷം മുതൽ ഭീംസെൻ ജോഷിയുടെ പേരിൽ സ്കോളർഷിപ്പ് തുടങ്ങുമെന്ന് ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് അറിയിച്ചു

കേരളം ആന്ധ്ര ക്ടർണാടക മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ തമിഴ്നാട് തെല്ലങ്കാന് എന്നീ സംസ്ഥാനങ്ങൾ പരിഷ് കാരങ്ങൾ പൂർത്തിയാക്കി

കശ്മീരിലെ ബിസിനസുകാരനായ ബഹൂർ അഹമദ് ഷാ യു

ഇ യിലെ ബിസിനസ്കാരനായ നവൽ കിഷോർ കപൂർ വിഘടനവാദി നേതാവ് അൽതാഫ് അഹമദ് ഷാ എന്നിവർക്കെതിരെയും വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്

ജീവനോപാധിയായി കഞ്ചാവ് കൃഷി ചെയ്യുന്ന പേ ഗ്രാമവാസികളും ലഹരിവിരുദ്ധ പരിപാടികൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്

ആഭ്യന്തരസംഘർഷം തൂട്ടതുന്ന യെമനിലെ മാനുഷിക പ്രതിസന്ധി പരിഗണിച്ചാണ് നടപടി യ്യെമനിൽ ഹൂതികൾക്ക് എതിരെ രംഗത്തുള്ള സൌദി അറേബ്യയുടെ നേതൃത്വത്തിള്ള സൈനികസഖ്യത്തിനുള്ള പിന്തുണ പിൻവലിക്കാൻ നേരത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദേശിച്ചിരുന്നു

മധ്യ പ്രവിശ്യയിലെ ഗിസാബ് ജില്ലയിൽ നടത്തിയ പ്രത്യേക സൈനിക നീക്കത്തിൽ നിരവധി ആയുധങ്ങളും ഭീകരരുടെ ഒളിത്താവളങ്ങളും നശിപ്പിച്ചതായി അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു

മൂന്നാം ദിനമായ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും കളി പുരോഗമിക്കും തോറും പിച്ചിന്റെ സ്വഭാവം മാറുന്നത് ഇന്ത്യൻ നിരയുടെ ബാറ്റിങ്ങിന് ദുഷ്കരമാകുമെന്നാണ് റിപ്പോർട്ട്

വിഷ്ണു വെള്ളി സ്വന്തമാക്കി

എലീറ്റ് ഗ്രൂപ്പ് സിയിലാണ് കേരളം

ബെംഗളുരുവിലാണ് മത്സരവേദി